സമ്മേളനം ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു

ശുചിത്വ ലക്ഷ്യങ്ങൾ നിറവേറ്റാനാകുമെന്നതിന്റെ ഉദാഹരണമാണ് ഇന്ത്യയെന്ന് യു

പുരസ്ക്കാരമായ ചാമ്പ്യൻ ഓഫ് എർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണിനും നാളെ സമ്മാനിക്കും

രാഷ്ട്രീയ ഇച്ചാശക്തി പ്രതിബദ്ധത എന്നിവയിലൂടെ ശുചിത്വ ലക്ഷ്യങ്ങൾ നിറവേറ്റാനാകുമെന്നതിന്റെ ഉദാഹരണമാണ് ഇന്ത്യയെന്ന് സമാപന സമ്മേളനത്തിൽ യു

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീവിജയ

സമത്പം കുലീനത ശാക്തീകരണം എന്നിവയിലൂന്നിയ ജീവിതം ആഗ്രഹിക്കുന്ന ലോകത്തെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രതീക്ഷയുടെ പുതുവെളിച്ചമാണ് അഹിംസയിലൂന്നിയ ഗാന്ധിയൻ ജീവിത ദർശനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു യുദ്ധവും വിദ്വേഷവും വെല്ലുവിളി ഉയർത്തുന്ന ഇക്കാലത്ത് അവയെ അതിജീവിച്ച് അക്രമരാഹിത്യത്തിന്റെ ിപ്പാതയിലേയ്ക്ക് ലോക ജനതയെ നയിക്കാൻ ഗാന്ധിയുടെ തൃശ്ശ്ര്ഹ്ഠിതകൾക്ക് കഴിയുമെന്ന് ന്യൂഡൽഹിയിൽ നാല് ദിവസമായി കന്ടക്കുന്ന മഹാത്മാഗാന്ധി അന്താരാഷ്ട്ര ശുചിത്വ കൺവെർഷ്ന്റെ സമാപന സമ്മേളനത്തിൽ യു

രാവിലെ രാഷ്ട്രപതി രീഹ്ാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ക്രൂധ്യൂന്മന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ട്റാസ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി യു

അദ്ധ്യക്ഷ സോണിയ ഗാന്ധി എന്നിവർ രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിൽ പൂഷ്പാർച്ചന നടത്തി

ഗാന്ധിജിക്ക് പ്രിയപ്പെട്ട ഭജൻ ആയ വൈഷ്ണവ ജനതോ തേനേ കഹിയേ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കലാകാരന്മാർ സംഗീതാർച്ചന നടത്തിയത്

എൻ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ശ്രീലങ്കയിൽ രാഷ്ട്രപതി മൈത്രി പാല സിരിസേന പ്രധാനമന്ത്രി റിനിൽ വിക്രമ സിംഗെ എന്നിവർ ഗാന്ധിജിയുടെ ചിത്രത്തിനു മുമ്പിൽ പുഷ്പാർച്ച നടത്തി ചൈനയിലും ഗാന്ധിജയന്തി സമുചിതമായി ആചരിച്ചു

രാഷ്ട്രീയ നേതൃത്വം മന്ത്രവുമായി പൊതുധനം ജനപങ്കാളിത്തം സഹകരണം എന്നിവ ശുചിത്വ ലോകത്തിനായുള്ള കാലത്തിന്റെ ആവശ്യമാണെന്ന് ന്യൂഡൽഹിയിൽ നാല് ദിവസങ്ങളിലായി നടക്കുന്ന മഹാത്മാഗാന്ധി അന്താരാഷ്ട്ര ശുചിത്വ കൺവെൻഷന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി പറഞ്ഞു ശുചിത്വത്തിനും പോഷണത്തിനുമാണ് ഗവൺമെന്റ് പ്രാധാനൃം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

രാഷ്ട്രപിതാവിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും യുവാക്കളിൽ എത്തിക്കുക എന്ന് ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരി ക്കുന്നത്

വിജ്ഞാൻ ഭവനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു

സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ട്റസിന്റെയും വിദേശകാരൃമന്ത്രി സുഷമ സ്വരാജ് കേന്ദ്രമന്ത്രി ആർ

സിംഗ് എന്നിവരുടെയും സാന്നിധൃത്തിലാ യിരുന്നു ഉദ്ഘാടന ചടങ്ങ് ഇന്ത്യൻ മഹാസമുദ്ര പ്രദേശത്തിന്റെ സമഗ്ര വികസനവും സഹകരണവും ലക്ഷ്യമിട്ടുള്ള ഐ

യുടെ ഊർജ്ജ പുനരുത്പാദന മന്ത്രിതല സമ്മേളനത്തിന് പ്രധാന മന്ത്രി തുടക്കം കുറിച്ചു ആഗോള നിക്ഷേപകരെ ആകർഷി ക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടാമത് ആഗോള പുനർ നിക്ഷേപ സമ്മേള നവും ഇതോടൊപ്പം നടക്കുകയാണ് നേരത്തെ സൌരോർജ്ജു സംബന്ധിച്ച പ്രദർശനം യു

കാലാവസ്ഥാ വൃതിയാനം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സാങ്കേതിക സഹകരണം യു എൻ നവീകരണ സമാധാന ശ്രമങ്ങൾ എന്നീ മേഖലകളിൽ ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ത്യ വഹിക്കുന്ന നേതൃപരമായ പങ്ക് ഇവയിലൂന്നിയായിരുന്നു ഇരു നേതാക്കളുടെയും ചർച്ച

ആഗോള വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ന്യൂഡൽഹി യിൽ സംഘടിപ്പിച്ച പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയാ യിരുന്നു അദ്ദേഹം

മിക്ക വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രൂ കൃഷി സഹമന്ത്രി ഗജേന്ദ്രസിംഗ് ഷിഹാവത്ത് പിന്നീട് വാർത്താലേഖ്കരോട് പറഞ്ഞു ഉത്തർപ്രദേശ് മന്ത്രിമാരായ ലക്ഷ്മി നാരായിൺ സുരേഷ് റാണ എന്നിവരോടൊപ്പം താൻ വീണ്ടും നേതാക്കുളൂമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ശ്രീ ഷിഹാവത് പറഞ്ഞു

തിരൂവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റുമോർട്ടത്തിനുശേഷം പൊതുദർശനത്തിനുവച്ച ഭൌതിക ശരീരത്തിൽ പഴയ സഹപാഠികൾ ഉൾപ്പെടെ കലാരംഗത്തെ നിരവധി പ്രമുഖരെത്തി അന്തിമോപചാരം അർപ്പിച്ചു

നടൻ മോഹൻലാലിന് സൂപ്പർതാര പദവി സമ്മാനിച്ച രാജാവിന്റെ മകൻ ഭൂമിയിലെ രാജാക്കന്മാർ ഇന്ദ്രജാലം നാടോടി തൂടങ്ങിയ നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്തു

നാളെ എറണാകുളത്ത് പൊതുദർശനത്തിന് വയ്ക്കുന്ന മൃതദേഹം വ്യാഴാഴ്ച കാഞ്ഞിരപ്പള്ളിയിൽ സംസ്ക്കരിക്കും

അമേരിക്ക്യിലെ ആർതർ അഷ്കിൻ ഫ്രാൻസിലെ ജെറാർഡ് മൌറോ കീർഡ്യിലെ ഡോണ സ്ട്രിക് ലാന്റ് എന്നീ ശാസ്ത്രജ്ഞരാണ് നൊബേൽ പുരസ്ക്കാരത്തന് അർഹരായത് കൂടതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ വോയിസ് വ്യാവസായി ആരോഗ്യ മേഖലയിൽ ഉപയോഗിക്കുന്ന സൂഷ്മത ആവശ്യമായ ഉപകരണങ്ങളുടെ നിർമാണത്തിന് സഹായകമാകുന്ന ലേസർ ഫിസിക്സ് മേഖലയിലെ കണ്ടുപിടിത്തത്തിനാണ് മൂന്ന് ഗവേഷകർക്കും അംഗീകാരം ലഭിക്കുന്നത് ജൈവ സംവിധാന ങ്ങളുടെ പഠനത്തിന് ഉപയോഗിക്കാവുന്ന ഓപ്റ്റിക്കൽ ടീസർ എന്ന് വിളിക്കാവുന്ന ലേസർ സാങ്കേതിക വിദ്യയാണ് ഡോ അഷ്കിൻ വികസിപ്പിച്ചെടുത്ത് അതീവ തീവ്രതയിലുള്ള ചെറിയ ലേസർ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള മാർഗ്ഗം കണ്ടുപിടിച്ചതിനാണ് ഡോ

ആഷ്കിൻ രണ്ട് പതിറ്റാണ്ടായി ലേസറിന്റെ പ്രത്യേകതകളെക്കുറിച്ച് പഠിച്ചു വരികയാണ് ദശാബ്ദങ്ങളായി ലേസർ ഗവേഷണത്തിൽ നിലനിൽക്കുന്ന പ്രതിബന്ധങ്ങളെ മറികടക്കുന്നതിനുള്ള ശ്രമങ്ങളു മായി മൌറോയും സ്ട്രിക് ലാന്റും റോപ്സ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തി വരുന്നു

സുസ്ഥിര വികസനത്തിനും കാലാവസ്ഥാ വൃതിയാനത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇരുവരെയും പുരസ്ക്കാരത്തിന് അർഹരാക്കി യത് ന്യൂഡൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിൽ നാളെ യു

സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പുരസ്ക്കാരം സമ്മാനിക്കും

ദേശീയ ദുരന്ത നിവാരണ ഏജൻസിയാണ് പുതിയ കണക്കുകൾ പുറത്തുവിട്ടത്